പരിധി ഇരുപതിൽ നിന്നും നാൽപ്പത് ലക്ഷമാക്കി ഉയർത്തി

കേൾക്കുമെന്ന് സുപ്രീംകോടതി

ഗുണഭോക്താക്കളുടെ വരുമാന പരിധി സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാമെന്ന് മന്ത്രി രവിശങ്കർ പ്രസാദ്

ന്യൂഡൽഹിയിൽ നടന്ന ജിഎസ്ടി കൌൺസിലിന് ശേഷം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചതാണിത് ആകെ പ്പ്പിറ്റുവരവിന് പകരം മൂല്യവർദ്ധനയ്ക്ക് തുല്യമായ തുക്യ്ക്ക് ജിഎസ്ടി ചുമത്തുന്നതരത്തിൽ ഘടന പ്രിഷ്ക്കരിച്ചതും പരിധി ഒരുകോടിയിൽ നിന്ന് ഒന്നര്കോടിയാക്കി ഉയർത്തിയതും ചെറുകിട കച്ചവടക്കാർക്ക് ആശ്വാസമാകും

കച്ചവടക്കാർ മൂന്ന് മാസത്തിലൊരിക്കൽ ജിഎസ്ടി റിട്ടേൺ ഫയൽ ചെയ്യണം

തമിഴ്നാട്ടിലെ പാർട്ടി ഭാരവാഹികളെ വീഡിയോ കോൺഫറൻസിംഗ് വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

സംസ്ഥാനങ്ങളെ ഒന്നിച്ചു നിർത്തി വികസന പാതയിൽ മുന്നേറുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

കർഷകർക്കും പാവപ്പെട്ടവർക്കും യുവാക്കൾക്കും സേവനം നൽകാൻ കഴിയുന്ന ്പാർട്ടിയായാണ് ബിജെപിയെ ജനങ്ങൾ കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബൂർത്ത് തലത്തിൽ ശക്തമായ പ്രവർത്തനം നടത്തുന്ന പാർട്ടിക്കായിരിക്കും പരമാവധി സീറ്റുകൾ ലഭിക്കുന്നത് വിജയം ഉറപ്പാക്കാനായി ബൂത്തുകളിലെ ജനങ്ങളുമായി ദൃഢമായ ബ്ളസ്ഥാപിക്കാൻ അദ്ദേഹം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടും പ്രതിരോധ മേഖലയിൽ കോൺഗ്രസ് സംസ്ക്കാരം പ്രവിളരെയധികം നഷ്ടമു ാക്കിയിട്ടു ് ഇടനിലക്കാരുടെയും മധ്യസ്ഥ്രുടെയും വിളഭൂമിയാക്കി കോൺഗ്രസ് പ്രതിരോധ മേഖലയെ മാറ്റി

ന്യൂസ്ഡെസ്ക് ആകാശവാണി

അഞ്ചംഗ ഭരണഘടനാ ബഞ്ചിൽ നിന്ന് ജസ്റ്റീസ് യു യു ലളിത് പിൻമാറിയതിനെ തുടർന്ന് ചീഫ് ജസ്റ്റീസ് രഞ്ചൻ ഗോഗോയുടെ നേതൃത്വത്തിൽ ബഞ്ച് പുനസംഘടിപ്പിക്കും

കേസിൽ വാദത്തിന് തയ്യാറാറെന്ന് കക്ഷികൾ അറിയിച്ചെങ്കിലും കോടതി അത് അനുവദിച്ചില്ല

വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ജോലിക്കും പത്ത് ശതമാനം സംവരണം ജനറൽ വിഭാഗങ്ങൾക്കും ഉറപ്പാക്കുന്നതാണ് ബിൽ

റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പാർലമെന്റില്ല ചർച്ചകളിൽ നേരിട്ട് പങ്കെടുക്കാതെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനായി ഒരു വനിതയെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയെന്ന പരാമർശത്തിന്റെ പേരിലാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ഈ പരാമാർശം സ്ത്രീകളോടുള്ള അവഹേളനമായി കാണുന്നതായി ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരിൽ നിന്നുള്ള ഇത്തരം പരാമർശങ്ങളെ കമ്മീഷൻ ശക്തമായി കുറ്റപ്പെടുത്തി

സിബിഐ യുടേയും ലാലുപ്രസാദ് യാദവിന്റെ അഭിഭാഷകൻ കപിൽ സിബലിന്റെയും വാദം കേൾക്കുന്നതിനായി ജാമ്യാപേക്ഷ കോടതി കഴിഞ്ഞ വെള്ളിയാഴ്ച മാറ്റിവെച്ചിരുന്നു

സെലക്ഷൻ കമ്മിറ്റിയുടെതാണ് തീരുമാനം ജസ്റ്റീസ് സിക്രിയുടെ നിലപാടാണ് നിർണായകമായത് മല്ലികാർജ്ജുൻ ഖാർഗേ വിയോജിച്ചു

ഫെലിക്സിന്റെ വിജയം ഭരണഘടനാ കോടതിയും സ്ഥിരീകരിച്ചു

എങ്കിലും ടെലിസ്കേപ്പിന്റെ പ്രവർത്തനക്ഷമമായ മറ്റ് മൂന്ന് ഉപകരണങ്ങൾ വഴി ശാസ്ത്രനിരീക്ഷണങ്ങൾ തുടരുമെന്ന് നാസ പ്രസ്താവനയിൽ അറിയിച്ചു കൃാമറയുടെ തകരാറുകൾ പരിശോധിച്ചു വരികയാണ്

ഭൂഗോള നിരീക്ഷണങ്ങൾക്കായി ശൂന്യാകാശത്ത് സ്ഥാപിച്ച ആദ്യത്തെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ ടെലിസ്കോപിക് സംവിധാനമാണ് ഹബിൾ

ന്യൂഡൽഹിയിൽ നിന്ന് വിഡീയോ ലിങ്കിലൂടെയാണ് മന്ത്രി ഗഡ്കരി കപ്പൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് ക ളയിൽ നിന്നും തൂത്തുക്കുടി വഴി മംഗലാപുരത്തേയ്ക്കും കൊച്ചിയിലേക്കും എത്തുന്നതാണ് ഈ ചരക്ക് കപ്പൽ

ന്യൂഡൽഹിയിൽ ലോക ഹിന്ദി ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ഹിന്ദിയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനായി ഒട്ടേറെ നടപടികൾ എടുത്തുവരിയാണ് ഹിന്ദിഭാഷ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രീയ ഹിന്ദി സംഘഥാന്റെ പ്രവർത്തനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു

ശനിയാഴ്ചവരെ സംസ്ഥാനത്ത് പരക്കെ മഴയും മഞ്ഞുവീഴ്ചയും ഉ ാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഗ്രൂപ്പ് എ യിൽ യുഎഇ യ്ക്ക് തൊട്ടുപിന്നിൽ ര ാം സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ

ഇതോടെ ലോകചാമ്പ്യൻഷിപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും ് കൂടുതൽ വിജയം നേടിയ താരമായി അവർ മാറി

സി

ഐ

മാർച്ച് ര ിന് ഹൈദരാബാദിലാണ് ഏകദിന പരമ്പര തുടങ്ങുന്നത്

എതിരാളികളായ ഹിമാചൽ പ്രദേശിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചാണ് കേരളത്തിന്റെ വിജയം അഞ്ച് വിക്കറ്റിനാണ് കേരളം ആതിഥേയരെ പരാജയപ്പെടുത്തിയത്